ലോകത്തെ ഏറ്റവും ബൃഹത്തായ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് രാജ്യവൃാപകമായി ആരംഭിച്ചിരിക്കെ ഇന്തൃയ്ക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം

റോഡപകടങ്ങൾക്കെതിളിൽ ജ്നങ്ങളെ ബോധവൽക്കരിക്കുന്നത് ന് ലക്ഷ്യമിട്ട് ദേശീയ റ്റോസ്സുരക്ഷാ മാസത്തിന്റെ ഉദ്ഘാടനം ഇന്ന്

കേന്ദ്ര സർക്കാരും കർഷകരുമായുള്ള അടുത്ത വട്ടം ചർച്ച നാളെ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയാണ് കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പ് ഉദ്ഘാടനം നിർവ്വഹിച്ചത് വിനാശകാരിയായ മഹാമാരിയെ ഉന്മൂലനം ചെയ്യുന്നതിന്റെ തുടക്കമായാണ് പ്രതിരോധ കുത്തിവയ്പ്പിനെ കാണുന്നതെന്ന് ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെ പറഞ്ഞു ആശംസയ്ക്ക് നന്ദി പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി മോദി ശാസ്ത്രജ്ഞരും മുൻനിര പോരാളികളും കോവിഡിനെതിരായ പോരാട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചതായി ട്വീറ്റ് ചെയ്തു

ക്കോവിഡ് നേരിടാൻ ഇന്ത്യയും ബ്രിട്ടനും സഹകരിച്ച് പ്രവർത്തിക്കുന്നുള്ട്ട്ന്നും അദ്ദേഹം പറഞ്ഞു ഭൂട്ടാൻ പ്രധാനമന്ത്രി ലോ്ട്തേയ് ഷെറിങ് നേപ്പാൾ വിദേശകാര്യ മന്ത്രി പ്രദീപ് കുമാർ ഗ്യാവലി എന്നിവരും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അഭിനന്ദനമറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണ്ണാടക അരുണാചൽ പ്രദേശ് കേരളം മണിപ്പൂർ എന്നിവിടങ്ങളിലാണ് കുത്തിവയ്പ്പ് നടത്തിയത്

നേരത്തെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ ബോറിസ് ജോൺസനെ ഇന്ത്യ ക്ഷണിച്ചിരുന്നെങ്കിലും ബ്രിട്ടനിൽ ജനിതകമാറ്റം വന്ന കോവിഡ് വ്യാപിക്കുന്നതിനാൽ അദ്ദേഹം സന്ദർശനം റദ്ദാക്കിയിരുന്നു

നിതി ആയോഗ് സി

ഇതിന്റെ ഭാഗമായി വിവിധ തരത്തിലുള്ള മത്സരങ്ങളും റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ഷ്ലൂച്ചിത്ര പ്രദർശനങ്ങളും ജനങ്ങൾക്കായി സംഘടിപ്പിക്കും

നാളെ നടക്കുന്ന അടുത്ത വട്ടം ചർച്ചയിൽ ബില്ലിലെ ഓരോ വ്യവസ്ഥയും ആഴത്തിൽ ചർച്ച ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞു വെള്ളിയാഴ്ച നടന്ന ഒൻപതാം വട്ട ചർച്ച തീരുമാനമാകാതിരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര കൃഷിമന്ത്രി ഇങ്ങനെ പറഞ്ഞത് മണ്ഡി വ്യാപാരി രജിസ്ട്രേഷൻ എന്നീ കാര്യങ്ങളിൽ കർഷകരുടെ ആശങ്കകൾ ചർച്ച ചെയ്യാമെന്ന നിർദ്ദേശവും ശ്രീ നരേന്ദ്ര സിംഗ് തോമർ കർഷക സംഘടനകൾക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത് സംബന്ധിച്ചും വൈദ്യുതി സംബന്ധിച്ചുമുള്ള നിയമങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ സന്നദ്ധമാണെന്നും എന്നാൽ സമരം ചെയ്യുന്ന കർഷകർ നിയമങ്ങൾ റദ്ദാക്കണമെന്ന കടുത്ത നിലപാടിലാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി

ഇന്ന് ഇവാൻ പാസർ സുശാന്ത് ്സിംഗ് രജ്പുത് ബസു ചാറ്റർജി എന്നിവരോടുള്ള ആദരസ്ട്രൂചക്മായി അവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും

നിലവിൽ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തോളം പേർ രാജ്യത്ത് കോവിഡ് ചികിത്സയിലുണ്ട്

രണ്ടർക്കോടിയോളം പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത്

ഫ്രാൻസ് യു

വാഷിങ്ടൺ സുന്ദറും ശാർദ്ദൂലും ചേർന്ന ഏഴാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് ഭേദപ്പെട്ട സ്കോറിലേക്ക് ഇന്ത്യയെ എത്തിച്ചത് മൂന്ന് വിക്കറ്റ് വീതം നേടി ബൌളിംഗിൽ തിളങ്ങിയ ഇരുവരും അർദ്ധസെഞ്ചുറി കൾ നേടി ഓൺ റൌണ്ട് മികവു കാട്ടി

ഇന്നലെ നടന്ന മത്സരങ്ങളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂരിനെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് പരാജയപ്പെടുത്തി അതേസമയം ഗോവ എ

മുംബൈ സിറ്റിയാണ് ഒന്നാം സ്ഥാനത്ത്

ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ലാൻസ്ഡൌൺ വൃന്മേഖലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചതായി മൃഗസംരക്ഷണ് വകുപ്പ് അറിയിച്ചു മഹാരാഷ്ട്രയിൽ പക്ഷിപ്പനി ബാധിച്ച പ്രദ്ധ്ശ്ങ്ങ്ളിൽ പക്ഷികളെ കൊല്ലുന്ന നടപടികൾ തുടരുന്നു

ഖാരിഫ് വിളകൾ താങ്ങുവില അടിസ്ഥാനമാക്കി സംഭരിക്കുന്നത് തുടരുകയാണെന്ന് കൃഷിമന്ത്രാലയം അറിയിച്ചു